ഖാദർ കമ്മിറ്റി ഖാദർ കമ്മറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെ തുടർ നടപടികൾക്ക് ഹൈക്കോടതിയുടെ ഇടക്കാല സ്റ്റേ ഹൈസ്കൂൾ ഹയർ സെക്കന്ററി വിദ്യാഭ്യാസർ ഒരേ ഭരണ സംവിധാനത്തിനു കീഴിൽ കൊണ്ടുവരണമെന്നായിരുന്നു ഖാദർ കമ്മറ്റിയുടെ റിപ്പോർട്ടിലെ പ്രധാന ശുപാർശ

ഈ വിദ്യാഭ്യാസ വർഷം മുതൽ ഖാദർ കമ്മിറ്റിയുടെ ഏതാനും ശുപാർശകൾ നടപ്പാക്കി തുടങ്ങിയിരുന്നു